സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ലോകത്തെ ഏറ്റവും വലിയുക്കിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി രാംനാ്ഥ് കോവിന്ദ് അഹമ്മദാബാദിൽ നിർവ്വഹിച്ചു

കേരളമുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഡൽഹി സർക്കാർ

പിഎം കിസാൻ സമ്മാൻ നിധി യോജനയുടെ രണ്ടാം വാർഷിക ത്തോടനുബന്ധിച്ചുള്ള ട്വീറ്റുകളിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കർഷകരുടെ ജീവിതം അനായാസമാക്കുന്നതിൽ പദ്ധതി സുപ്രധാന പങ്കു വഹിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു

വോയ്സ് കാർഷിക മേഖലയുടെ സമഗ്ര്യപ്രീഷ്കരണത്തിനായി കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നിരവധി സുപ്രധാന ചുവടുവയ്പു കൾ നടത്തിയതായി പ്രധാന്മന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

മികച്ച ജലസേചന സാങ്കേതിക സംവിധാനങ്ങളും വായ്പാ ലഭൃത യും വിപണി സാമിപ്യവും വിള ഇൻഷുറൻസും കേന്ദ്രസർക്കാർ ഉറപ്പു വരുത്തി താങ്ങുവിലയിൽ ചരിത്രപരമായ വർദ്ധനയാണ് കേന്ദ്രസർക്കാർ വരുത്തിയതെന്നും കർഷകരുടെ വരുമാനം ഇരട്ടി യാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കർഷ കർക്ക് പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് ഗഢുക്കളായി ബാങ്ക് അക്കൌണ്ടിലേക്ക് കൈമാറുന്നതാണ് പദ്ധതി

ന്യൂസ് ഡസ്ക് ആകാശവാണി

കാരക്കലിലെ ജിപ്മർ മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിനും പുതുച്ചേരി ജിപ്മറിന്റെ രക്ത ബാങ്കിനും പുറമേ പുതുച്ചേരിയിലെ തുറമുഖ വികസന പദ്ധതിയ്ക്കും ഇന്ദിര ഗാന്ധി സ്പോർട്സ് കോംപ്ലക്സിലെ സിന്തറ്റിക് ട്രാക്കിനും അദ്ദേഹം നാളെ തറക്കല്ലിടും

സ്റ്റേഡിയത്തോട് ചേർന്നുള്ള സർദാർ വല്പഭായി പട്ടേൽ സ്പോർട്സ് എൻക്ലേവിന്റെ ശിലാസ്ഥാപനവും രാഷ്ട്രപതി നിർവഹിച്ചു

മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇക്കാര്യം അറിയിച്ചത് പുതുച്ചേരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും കേന്ദ്ര മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തു മുഖ്യമന്ത്രി രാജിവച്ചതിനെ തുടർന്ന് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ സർക്കാർ രൂപീകരിക്കാൻ മുന്നോട്ടു പ്രൊത്ത് സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് ശ്രീ

ടി

ഈ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപ്രി ആകർഷിക്കാൻ തീരുമാനത്തിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ർവിശങ്കർ പ്രസാദ് അറിയിച്ചു

തീരുമാനം ഈ രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ഉപഭോക്താക്കൾക്ക് നൽകാൻ സഹായിക്കുമെന്നും ആണ് കണക്കാക്കപ്പെടുന്നത്

ദേശീയ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ കരസേനയുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം

കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കാണ് സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തിയത് വിമാനം ട്രെയിൻ ബസ് എന്നീ മാർഗ്ഗങ്ങളിലൂടെ ഡൽഹിയിലെത്തുന്നവർ ് സർട്ടിഫിക്കറ്റ് കൈവശം കരുത്ണം എന്നാൽ സ്വന്തം വാഹ്രന്നങ്ങളിൽ എത്തുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല

കേരളം മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് കർണാടകം തമിഴ്നാട് പശ്ചിമബംഗാൾ ജമ്മുകൾ്മീർ എന്നിവിടങ്ങളിലാണ് സംഘം എത്തുന്നത് ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ മൂന്നംഗ സംഘമാണ് സന്ദർശനം നടത്തുക

നികുതി ഈടാക്കൽ പെൻഷൻ വിതരണം ചെറുകിട നിക്ഷേപങ്ങൾ തുടങ്ങിയവയ്ക്ക് തീരുമാനം ബാധകമാണ്

ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്

പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് മുംബൈ സിറ്റി